എസ് ആർ ടി

ക്ഷേത്രങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളും ആഘോഷ നിറ വിൽ രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ജമ്മുകശ്മീരിൽ മാധ്യമങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടു ത്തിയിട്ടില്ലെന്നും വർത്തമാന പത്രങ്ങൾ ഒരു തടസ്സവുമില്ലാതെ പ്രസിദ്ധീക രിക്കപ്പെടുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു മാധ്യമ പ്രവർത്തകർക്ക് ജമ്മുകശ്മീർ സന്ദർശിക്കാനും സ്ഥിതിഗതികൾ മനസ്സിലാ ക്കാനും പൂർണ സ്വാതന്ത്ര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

കശ്മീരി ജനത ഇക്കാര്യത്തിൽ ഗവൺമെന്റ് നടപടിയെ പിന്തുണയ്ക്കുന്നവരാണെന്നും ജാവ്ദേക്കർ കൂട്ടിച്ചേർത്തു

ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

റഫേൽ യുദ്ധവിമാനത്തിൽ അദ്ദേഹം യാത്രയും നടത്തും

ഫ്രാൻസിലെ പ്രതിരോധ വൃവസായ മേഖലയിലെ കമ്പനി സി ഇ ഒമാരെ അഭിസംബോധന ചെയ്യുന്ന രാജ്നാഥ്സിംഗ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി സഹകരിക്കാൻ അഭ്യർത്ഥിക്കുകയും അടുത്ത വർഷം ലക്നൌവിൽ നടക്കുന്ന ഡിഫൻസ് എക്സ്പോയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്യുമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ദർവ്വെട്ടറ ആദായ നികുതി വകുപ്പിന്റെ നാഷണൽ ഇ അസ്സസ്മെന്റ് സെന്റർ ന്യൂഡൽഹിയിൽ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സൃീതാരാമൻ ഉദ്ഘാടനം ചെയ്യും നികുതിദായകർക്ക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് സെന്റർ നികുതി നിർണയം സുതാര്യമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സെന്ററിന്റെ പ്രവർത്തനം സഹായകരമാകുമെന്ന് ആദായനികുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

മിനിമം വേതനം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കിയെങ്കിലും കേരള ത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ നിലപാടുമൂലം ഇത് പൂർണമായി നട പ്പാക്കാനായിട്ടില്ല കൊച്ചിയിൽ സ്വകാര്യ വാർത്താചാനൽ സംഘടിപ്പിച്ച നഴ്സിംഗ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഴ്സുമാർക്ക് നീതി ലഭിക്കാനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി കെ കെ ശൈലജ മുഖ്യപ്രഭാഷണം നടത്തി

എസ് ഇ ഇന്റർ സ്കൂൾ അത്ലറ്റിക് മീറ്റിന്റെ ലോഗോ പ്രകാശനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു

പഠന കാര്യത്തിൽ മാത്രമല്ല പാഠ്യേ തര കാര്യങ്ങളിലും മികവ് പുലർത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ ഉണ്ട്

കായികമേളകൾപോലെ ദേശീ യതലത്തിൽ സി ബി എസ് ഇ കലാമേളകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ഭാവി യിൽ കലാമേളകളും ദേശീയതലത്തിൽ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാ കട്ടെയെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട ഭിന്നശേഷിക്കാർക്ക് സഹായത്തിനായി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന നയം കൊണ്ടുവരുമെന്ന് മന്ത്രി കെ

നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആന്റ റീഹാബിലിറ്റേഷൻ കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ സാമൂഹ്യ നീതിവകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സഹായ ഉപകരണ പ്രദർശനം അവസരങ്ങളുടെ ആഘോഷം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഓരോരുത്തരുടെയും പരിമിതികൾ മനസ്റ്റിലാക്കി അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്നും അസിസ്റ്റീവ് ഡിവൈസ് പോളിസി കൊണ്ട് വരുന്നതിലൂടെ ഈ രംഗത്തു വേണ്ട പഠനം നടത്തും ഇതിനായി നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു

ഫ്ളാറ്റ് പൊളിക്കുന്നതിനെക്കുറിച്ച് സാങ്കേതിക പഠനത്തിനായി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഇന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും ഈ റിപ്പോർട്ട് അനുസരിച്ചാവും ഏതൊക്കെ കമ്പനികൾക്ക് കരാർ നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിപ്പിച്ചവരുടെ പുനരധിവാസം പൊളിക്കാനുള്ള തയ്യാ റെടുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃ ത്വത്തിൽ ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി

എസ്

ഹൈക്കോ ടതി നിർദ്ദേശ പ്രകാരം താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് കെ എസ്

ടി സിയിൽ ഡ്രൈവർമാരുടെ കുറവുമൂലം പ്രതി സന്ധി ഉടലെടുത്തത്

എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ മന്ത്രി ജി സുധാകരൻ ആക്ഷേപിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിൽ വരണാധികാരികൂടിയായ ആലപ്പുഴ ജില്ലാ കലക്ടർ ഡോക്ടർ അഥീല അബ്ദുള്ള ഇന്ന് റിപ്പോർട്ട് നൽകും മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീ സർ ടിക്കാറാം മീണയ്ക്കാണ് റിപ്പോർട്ട് കൈമാറുക അതേസമയം തന്റെ പരാമർശം പ്രത്യേക വൃക്തിയെ ഉദ്ദേശിച്ചല്ലെന്ന് മന്ത്രി ജി സുധാകരൻ വിശ ദീകരിച്ചു ഇതുസംബന്ധിച്ച് യു

എഫ് നടത്തുന്ന സത്യവിരുദ്ധ പ്രചാ രണം തടയണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വരണാധികാരിക്ക് കത്ത് നൽകി

സഭ നേരിടുന്ന പ്രതിസന്ധികളെ ഒറ്റക്കെ ട്ടായി നേരിടുമെന്ന് വിശ്വാസികൾ പ്രതിജ്ഞയെടുത്തു കോതമംഗലം ചെറിയ പള്ളിയിൽ കൽക്കുരിശിൽ ആലത്ത് കെട്ടിയാണ് വിശ്വാസികൾ രണ്ടാം കൂനൻ കുരിശ് സത്യം നടത്തിയത് ദൃശ്ശിക്കും ശാസ്ത്രീയവും സൂക്ഷ്മവുമായ അന്വേഷണം നടത്തി കൂടത്തായിയിലെ ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിച്ച കേരള പൊലീസ് സേനാംഗങ്ങളെ മന്ത്രി ടി

പ്രശംസനീയമായ നിലയിൽ ചുമതല നിർവഹിച്ച അന്വേഷണ സംഘാംഗങ്ങളെയും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നവരെയും മന്ത്രി അഭിനന്ദിച്ചു

ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ സംഗീതാർച്ച നകൾ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളിലെ മുഖ്യചടങ്ങായ രഥോത്സവം ഇന്ന് നടക്കും പ്രധാന ക്ഷേത്രങ്ങളിലും ആദ്ധ്യാത്മിക കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും വായനശാലകളിലും തൊഴിലിടങ്ങളിലും പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെച്ചു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കോട്ടയം പനച്ചിക്കാട് തൃശൂർ തിരുവുള്ളക്കാവ് കൊരട്ടി മുളവള്ളിക്കാവ് എറണാകുളത്തെ ചോറ്റാനിക്കര ക്ഷേത്രങ്ങളിലും സരസ്വതീ സാന്നിധ്യം കല്പ്പിക്കുന്ന ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാ യി

നാവിൻ തുമ്പിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നു കൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കും

ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങളുടെ വലിയ നിര കാണാം നാളെ വിദ്യാരംഭത്തിന് ഒരുക്കങ്ങളും പൂർത്തിയായി

വൈകുന്നേരം ആറിന് ദീപാരാധനയും വൈകുന്നേരം ഏ ഴിന് ഭക്തിഗാന മഞ്ജരിയും നടക്കും നാളെ രാവിലെ ഒമ്പത് മുതൽ വിജയ ദശമി ദിനത്തിൽ രാവിലെ ഒമ്പത് മുതൽ എഴുത്തിനിരുത്തൽ നടക്കും അഴ കൊടി ദേവീക്ഷേത്രത്തിൽ രാവിലെ ഒമ്പത് മുതൽ കുമാരീപൂജയും രാത്രി മെഗാഗാനമേളയും നടക്കും വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം ചടങ്ങുക ളും നടക്കും രദ്ദേഷ്ടങ ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ കീഴിലുള്ള കുറുമ്പത്തൂരിലെ മേല്പത്തൂർ സ്മാരക മണ്ഡപത്തിൽ വിദ്യാരംഭ പരിപാടികൾ ആരംഭിച്ചു മൂന്നു ദിവസത്തെ പുസ്തക പൂജ ചേർക്കാട്ട് ശങ്കരനാരായണൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്തിൽ തുടങ്ങി

ഔദ്യമെട്ടറി വിജയദശമി നാളിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ മലയാള ഭാഷാപിതാവിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് കുരുന്നുകളെത്തും പുലർച്ചെ അഞ്ചുമുതൽ തുഞ്ചൻ പറമ്പിൽ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ആരംഭിക്കും കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പരൃ എഴുത്താശ്ശാൻമാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരും കുട്ടികളെ എഴുത്തിനിരു ത്തും രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട പാലായിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് പരിക്കേറ്റ അഫീൽ ജോൺസന്റെ ആരോഗൃനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രി അധികൃതർ അറിയിച്ചു

ഒരു ദിവസം കൂടി അഫീലിനെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ ഡോക്ടർമാർ നിർദേശിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പാലായിൽ തുടങ്ങിയ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനമാണ് ഹാമർ വീണ് പാലാ സെന്റ് തോമസ് സ് കൂൾ വിദ്യാർത്ഥി അഫീലിനു പരിക്കേറ്റത്

ദർവ്വട്ടെഴ കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർകൊളീജിയേ റ്റ് വനിതാ ഫുട്ബാൾ ഫൈനലിൽ ഇരിങ്ങാലക്കുട സെന്റ്ജോസഫ് കോളെ ജ് ജേതാക്കളായി നിലവിലെ ജേതാക്കളായ മാള കാർമൽ കോളെജിനെ ഒ ന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് ഇരിങ്ങാലക്കുട സെന്റ്ജോസഫ് കോ ളെജ് പരാജയപ്പെടുത്തിയത് വിജയികൾക്ക് കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ പി മനോജ് ട്രോഫികൾ സമ്മാനിച്ചു

എൻ കാരശ്ശേരി സി ആർ നീലകണ്ഠൻ ഡോക്ടർ ആസാദ് കെ അജിത തുടങ്ങി യവരുൾപ്പെട്ട സംഘത്തെയാണ് തടഞ്ഞതെന്നാണ് പരാതി യാതൊരു കാര ണവുമില്ലാതെ നാട്ടുകാർ നിരായുധരായ തങ്ങളെ തടയുകയായിരുന്നുവെ ന്ന് ഡോക്ടർ എം എൻ കാരശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞു പരിസ്ഥിതി വി രുദ്ധമായ വികസനം യഥാർഥ വികസനമല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെ ന്നും തങ്ങളുടെ സഞ്ചാരസ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കക്കാടംപൊയിലിൽ സാസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരെ ത ടഞ്ഞതിൽ പ്രതിഷേധിച്ച് മാനാഞ്ചിറയിൽ പ്രതിഷേധ യോഗം നടത്തി